ഈ സമയം വിളക്കുകളും മെഴുകുതിരികളും മൊബൈൽ ഫോണിലെ ഫ്ലാഷ് ലൈറ്റുകളും തെളിച്ച് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ജനങ്ങൾ ഏറ്റെടുക്കും കൊറോണ വൈറസിനെതിരായ പോരാട്ടത്തിൽ രാജ്യത്തിന്റെ കൂട്ടായ്മ യുടെ പ്രതിഫലനമാകും ഇത് ഒറ്റക്കെട്ടായ പോരാട്ടത്തിൽ പ്രകാശത്തിന്റെ ഉജ്ജ്വലമായ ശക്തി നാം അനുഭവിക്കാൻ പോവുകയാണെന്ന് പ്രധാനമന്ത്രി വീഡിയോ സന്ദേശത്തിൽ വൃക്തമാക്കി കൊറോണ മഹാവ്യാധി പടർത്തിയ ഇരുട്ടിൽ നിന്നും നമ്മൾ പ്രകാശത്തിലേക്കും പ്രതീക്ഷയിലേക്കും മുന്നേറണം ലോക്ക്ഡൌണിന്റെ ഘട്ടത്തിൽ എല്ലാവരും വീട്ടിനുള്ളിലാണെങ്കിലും ആരും ഒറ്റയ്ക്കല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ സാമൂഹിക അകലം പാലിക്കലും ജാഗ്രതാ നിർദ്ദേശങ്ങളും പൂർണ്ണമായും പാലിച്ചാണ് ജനങ്ങൾ ഇന്ന് ദീപം തെളിക്കുന്നത് വീടുകളുടെ വരാന്തയിലോ മട്ടുപ്പാവിലോ നിന്നാവണം വിളക്കുകൾ തെളിക്കേണ്ടതെന്നും ആരും ലക്ഷ്മണ രേഖ ലംഘിക്കരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ദീപം തെളിക്കൽ ചടങ്ങിനായി ജനങ്ങൾ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് വീട്ടുമുറ്റത്തും ഫ്ളാറ്റുകളുടെ ബാൽക്കണിയി ലുമെല്ലാം ഇന്ന് രാത്രി ഒമ്പതിന് ദീപങ്ങൾ തെളിയും പ്രധാനമന്ത്രിയുടെ ആഹ്വാനം നടപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി